ദൂർഗ്ഗാ പൂജയെ വരുവേൽക്കാൻ രാജ്യം ഒരുങ്ങി

ജന്മദിനമായ ഇന്ന് രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു

തടയാനുള്ള പദ്ധതിയ്ക്ക് ഇന്ന് തുടക്കമായി

പൈലറ്റ് പദ്ധതി എന്ന നിലയിൽ ആദ്യമായാണ് ഇത്തരമൊരു ആപ്തിക്കേഷൻ പുറത്തിറക്കുന്നത്

അഫ്ഗാനിസ്ഥാനിൽ ഏകീകൃതവും സുരക്ഷിതവും സാമ്പത്തികവുമായ സാഹചര്യം ഒരുക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു അഫ്ഗാൻ നയതന്ത്ര പ്രതിനിധികൾക്കായി സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ

ജെ അബ്ദുൾ കലാമിന്റെ ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം അദ്ദേഹത്തിന് ശ്രദ്ധാജ്ഞലി അർപ്പിക്കുന്നു

കലാം വൈവിധ്യനായ അധ്യാപകനും പ്രചോദകനും ശാസ്ത്രജ്ഞനുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്ടിറ്ററിൽ കൂറിച്ചു ഓരോ ഇന്തൃക്കാരന്റെയും ഹൃദയത്തിലാണ് കലാം ഇന്നും ജീവിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ജനകീയനായ രാഷ്ട്രപതിയും ദീർഘവീക്ഷണവുമുള്ള ശാസ്ത്രജ്ഞനുമായിരുന്നു ഡോ കലാം എന്ന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അനുസ്മരിച്ചു

വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കർണാടകയിലും നവരാത്രി ഉൽസവങ്ങൾക്ക് തുടക്കമായി

ദിനാചരണത്തിന്റ ഭാഗമായി ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര കൃഷി മന്ത്രി രാധാ മോഹൻ സിംങ് സദസ്സിനെ അഭിസംബോധന ചെയ്യും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വനിതാ കർഷകരും സ്ത്രീ സംരംഭകരും കാർഷിക സംഘടനകളും ശാസ്ത്രഞ്ജരും ഗവേഷകരും സമ്മേളനത്തിൽ പങ്കെടുക്കും

നാഗ്പൂരിലെ ഏകലവൃ എകാൽ സ്കൂളിലെ ഡിജിറ്റൽവൽക്കരണ പരിപാട്ടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഒ യിലെ ആകാശ നടപ്പാത കേന്ദ്ര ഭവന നഗരകാര്യമന്ത്രി ഹർദിപ് പുരി ഇന്ന് ഉദ്ഘാടനം ചെയ്യും

നഗരവികസനത്തിന്റെ ഭാഗമായി നടപ്പാക്കുന്ന അഞ്ച് യാത്രാസൌകര്യ പദ്ധതികളിൽ ഉൾപ്പെട്ടതാണ് ആകാശ നടപ്പാതയെന്ന് ശ്രീ

ഇന്ന് രാവിലെ മുളബൈ ഛത്രപതി ശിവജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലായിരുന്നു സ്ഭവം പരിക്കേറ്റ എയർ ഹോസ്റ്റസ് ഹർഷ ലോബോ മുംബ്ബെ നാനാവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്

വായുവിന്റെ ഗുണനിലവാരം അതീവ അപകടകരമായ രീതിയിൽ താഴ്ന്നതിനെ തുടർന്ന് കഴിഞ്ഞ നവംബറിൽ സംസ്ഥാന ഗവൺമെന്റ് ഡൽഹിയിൽ ആരോഗൃ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരുന്നു

ഡീസൽ ജനറേറ്ററുകൾ നിർമ്മാണപ്രവൃത്തികൾ എന്നിവ നിരോധിക്കുകയും മലിനീകരണത്തിനിടയാക്കുന്ന വാഹനങ്ങളുടെ ഗതാഗതം നിയന്ത്രിക്കുകയും ചെയ്യുന്നത് അടക്കമുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്

അപകടകരമായ രീതിയില് മലിനീകരിക്കപ്പെട്ട അന്തരീക്ഷ വായുവിന്റെ ഗുണനിലവാരം തിരിച്ചുപിടിക്കുന്നതിനായി വിവിധ തലങ്ങളിലുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് മാലിന്യങ്ങൾ കത്തിക്കുന്നത് നിരോധിക്കും

വ്യാവസായിക മേഖലകളിൽ ശക്തമായ മലിനീകരണ നിയന്ത്രണത്തിനുള്ള നടപടികളും കൈക്കൊള്ളും ഡൽഹിയിലെ മലിനീകരണത്തിന്റെ തോത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൾ അതീവ മോശം സ്ഥിതിയിലേക്കെത്തുമെന്നാണ് കരുതപ്പെടുന്നത്

സാഹചര്യത്തിലാണ് നടപടികൾ കൃഷിയിടങ്ങളിൽ അവശിഷ്ടം കത്തിക്കുന്നതിന് കർശന നിരോധനം ഏർപ്പെടുത്തും മലിനീകരണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നഗരത്തിലെ പാതകളിൽ ലോറികളുടെ ഗതാഗതം നിരോധിക്കും

ന്യൂസ്ഡെസ്ക് ആകാശവാണി

മധ്യ കാശ്മീരിലെ ബുദ്ഗാട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം

കഴിഞ്ഞ മാസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രോഗ്രസീവ് പാർട്ടി ഓഫ് മാൽദ്വീപ്സാണ് ഹർജി നൽകിയത് ഹർജിയിൽ കക്ഷി ചേർന്ന സംയുക്ത പ്രതിപക്ഷ പാർട്ടികളുടെ വാദവും ഫുൾബഞ്ച് കേൾക്കും

മധ്യജർമ്മനിയിലെ ഹെസെ സംസ്ഥാനത്ത് ചെറുവിമാനം തകർന്നുവീണ് രണ്ടു സ്ത്രീകളും ഒരു ആൺകുട്ടിയുമാണ് കൊല്ലപ്പെട്ടത്

കേരളത്തിലേക്ക് പ്രവേശിക്കരുതെന്നും രണ്ടാഴ്ച കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കു മുന്നിൽ ഹാജരാകണമെന്നും ഉപാധിയുണ്ട് പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം

അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണം എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് എന്നാൽ ജാമ്യാപേക്ഷയെ സംസ്ഥാന ഗവൺമെന്റ് എതിർത്തു

ഇഞ്ചുറി ടൈമിൽ പ്രതിരോധ താരം ക്രിസ്റ്റിയാനോ ബിരാഗിയാണ് ഇറ്റലിക്കായി ഗോൾ നേടിയത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇറ്റലിക്ക് ഗോളിനുള്ള അവസരങ്ങൾ ലഭിച്ചെങ്കിലും പാഴാക്കി അതേസമയം തോൽ വിയോടെ പോളണ്ട് യുവേഫ നേഷൻസ് ലീഗിൽ തരംതാഴ്ത്തപ്പെടുന്ന ആദ്യ ടീമായി ഇനി പോളണ്ട് യൂറോപ്പിലെ രണ്ടാം ഡിവിഷൻ ഫുട്ബോള് കളിക്കേണ്ടിവരും